പാർലമെന്റ് സമ്മേളനം സുഗമമായി നടക്കാൻ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും സഹകരിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി

ഉഷ്ണതരംഗവും ക്യേന്ദ് ആരോഗ്യമന്ത്രി ഹർഷ വർദ്ധൻ സ്ഥിതിഗതികൾവിലയിരുത്തി

ലോക അമ്പെയ്ത്ത് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയ്ക്ക് വെള്ളി

രാജ്യസഭാ സമ്മേളനം വ്യാഴാഴ്ചയും ആരംഭിക്കും

മാരുടെ സത്യപ്രതിജ്ഞാ ചടങ്ങു കളും ലോക്സഭാ സ്പീക്കർ തെരഞ്ഞെടുപ്പും രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപന പ്രസംഗവും നന്ദിപ്രമേയ ചർച്ചയും ആകും പ്രധാന മായും നടക്കുക പാർലമെന്റ് സമ്മേളനത്തിന് മൂന്നോടിയായി ഇന്ന് ചേർന്ന സർവ്വകക്ഷി യോഗത്തിൽ ജനനന്മയ്ക്കൂവ്വേണ്ടി എല്ലാ പാർട്ടികളും ഒരുമിച്ച് പ്രവർത്തിക്കണമെന്ന് പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തു വിശദാംശങ്ങളുമായി ലിൻസ വോയിസ് പാർലമെന്റ് സമ്മേളനത്തിനു മുന്നോടിയായി പ്രധാനമന്ത്രിയുടെ നേതൃത്വ ത്തിൽ ഡൽഹിയിൽ ചേർന്ന സർവ്വകക്ഷി യോഗത്തിൽ ഇരുസഭകളുടെയും സുഗമമായ നടത്തിപ്പിന് ഗവൺമെന്റ് പ്രതിപക്ഷ പാർട്ടികളുടെ സഹകരണം അഭ്യർത്ഥിച്ചു രാഷ്ട്രീയ ഭേദമില്ലാതെ രാജ്യപുരോഗതിക്കായി എല്ലാവരും ഒരുമിച്ച് പ്രവർത്തിക്കണമെന്ന് പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തു

പ്രധാനമന്ത്രിക്കു പുറമെ പ്രതിരോധമന്ത്രി രാജ്നാഥ് സിംഗ് പാർലമെന്ററികാര്യ മന്ത്രി പ്രഹ്താദ് ജോഷി കോൺഗ്രസിൽ നിന്ന് ഗുലാം നബി ആസാദ് ആന്ദന്ദ് ശർമ എൻ

പി യുടെ സുപ്രിയ സുലെ ഡി

ബജറ്റിനു മുന്നോടിയായി പാർല മെന്റിന്റെ സംയുക്ത സമ്മേളനത്തെ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് വ്യാഴാഴ്ച അഭിസംബോധന ചെയ്യും ജൂലൈ അഞ്ച് ക്വെള്ളിയാഴ്ചയാണ് കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ ബള്ള്ള് അവതരിപ്പിക്കുക

മുത്തലാഖ് കേന്ദ്ര വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആധാർ നിയ്മഭ്ഭേദ്ഗതി തുടങ്ങിയ ബില്ലുകൾ ഈ പാർലമെന്റ് സമ്മേളനത്തിൽ അവതരിപ്പിക്കപ്പെടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്

എം

എസും തമ്മിലുള്ള വ്യാവസായിക യുദ്ധം ഇന്ത്യൻ കയറ്റുമതി മേഖലയ്ക്ക് ഗുണം ചെയ്യുമെന്ന് കേന്ദ്ര വാണിജ്യമന്ത്രാലയത്തിന്റെ പഠനം

മന്ത്രാലയം നടത്തിയ പഠനത്തിൽ കയറ്റൂമതി വർദ്ധിക്കാൻ സാദ്ധ്യതയുള്ള ഉൽപ്പന്നങ്ങൾ കണ്ടെത്തി യിട്ടൂണ്ട്

മുമ്പ് ഇത് അമേരിക്കയാണ് ചൈനയി ലേയ്ക്ക് കയറ്റുമതി ചെയ്തിരുന്നത് അതുപോലെ റബ്ബർ ഗ്രാഫൈറ്റ് ചെമ്പ് അയിര് പേപ്പർ ഡാറ്റാ ട്രാൻസ്മിഷൻ ഉൽപ്പന്നങ്ങൾ പൈപ്പ് തുടങ്ങിയ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്കും പുതിയ അവസരങ്ങൾ യു എസ് ചൈന വ്യാപാര യുദ്ധത്തിലൂടെ കൈവന്നു

ചൊവ്വാഴ്ച ഉപതെരഞ്ഞെടുപ്പിന്റെ വിജ്ഞാപനം പുറപ്പെടു വിക്കും

ഗുജറാത്തിൽ കേന്ദ്രമന്ത്രി മാരായ അമിത്ഷാ സ്മൃതി ഇറാനി എന്നിവർ ലോക്സഭയിലേയ്ക്ക് തെരഞ്ഞെ ടുക്കപ്പെട്ടതിനെ തുടർന്ന് ഗുജറാത്തിൽ ഒഴിഞ്ഞ രണ്ട് സീറ്റുകളിലേയ്ക്കും ബിഹാറിൽ കേന്ദ്രമന്ത്രി രവിശങ്കർ പ്രസാദ് ലോക്സഭയിലേയ്ക്ക് തെരഞ്ഞെടു ക്കപ്പെട്ടതിനെ തുടർന്ന് ഒഴിഞ്ഞ സീറ്റ് ഒഡീഷയിൽ ഒഴിഞ്ഞ മൂന്ന് സീറ്റുകൾ എന്നിവയിലേയ്ക്കും ഉപതെരഞ്ഞെടുപ്പ് നടക്കും

ജെ പിയുടെ രാധാകൃഷ്ണ വിഖേ പാട്ടീൽ ആശിഷ് ശേലാർ സ്റ്റ്രേഷ് ഖാദേ അനിൽ ബോൺട്ടേ അശോക് യുക് ശിവസേനയുടെ ക്ഷീർസ്പാ്ഹർ എന്നിവരാണ് മന്ത്രിസഭയിലെ പ്രമുഖർ

ഹർഷ് വർദ്ധൻ സംസ്ഥാനത്തെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി മുസാഫർപൂരിലെ ശ്രീകൃഷ്ണ മെഡിക്കൽ കോളേജിൽ സന്ദർശനം നടത്തിയ കേന്ദ്രമന്ത്രി ചികിത്സാ സംവിധാനങ്ങൾ നിരീക്ഷിച്ചു വിവിധ വാർഡുകൾ സന്ദർശിച്ച മന്ത്രി ഡോക്ടർമാരുമായി ആശയവിനിമം നടത്തി കേന്ദ്ര ആരോഗ്യ സഹമന്ത്രി അശ്വിൻ കുമാർ ചുബ്ബേ ബിഹാർ ആരോഗ്യമന്ത്രി മംഗൾ പാണ്ഡേ എന്നിവരുമായും ശ്രീ

സംസ്ഥാന ഗവൺമെന്റിന് എല്ലാവിധ സഹായങ്ങളും നൽകിയതായി അദ്ദേഹം മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞു

സീതാമർഹി ജഹാനബാദ് കിഴക്കൻ ചമ്പാരൻ വൈശാലി ബഗുസ്വരായി ജില്ലകളിൽ നിന്നും ഉഷ്ണതരംഗത്തെ തുടർന്ന് കൂടുതൽ പേർ ആശുപത്രികളിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ്

അത്യാഹിത വിഭാഗം ഒഴിവാക്കിയിട്ടുണ്ട് ഡോക്ടർമാർക്കെതിരെ ആക്രമണം നടക്കുന്ന സാഹചര്യത്തിൽ ഡോക്ടർ മാർക്കും ആശുപത്രി ജീവനക്കാർക്കും രോഗികൾക്കും സംരക്ഷണം നൽകുന്ന രീതിയിൽ കേന്ദ്രനിയമം ഉണ്ടാകണം എന്ന് ആവശ്യപ്പെട്ടാണ് സമരം നടത്തുന്നത് കേരളത്തിലെ ഗവൺമെന്റ് സ്വകാര്യ മേഖലയിലെ ഡോക്ടർമാരും സംഘടനകളും സമരപരിപാടികൾക്കു പിന്തുണ നൽകിയിട്ടുണ്ട്

രണ്ടാമതും പ്രധാന മന്ത്രിയായി തെരഞ്ഞെടുക്കപ്പെട്ടശേഷ്ടം ആദ്യമായാണ് ശ്രീ

ശ്രോതാക്കൾക്ക് തങ്ങളുടെ ആശയങ്ങൾ പരിപാടിയിൽ ഉൾപ്പെടുത്താനും അവസരമുണ്ട്

ഇത് അറബിക്കടലിൽ നിന്നും മൺസൂൺ കാറ്റ് തീരത്തേയ്ക്കെത്താൻ വഴിയൊരുക്കുമെന്നും കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പ് അറിയിച്ചു

കൂടാതെ നേപ്പാളിലെ ഇന്ത്യൻ അംബാസിഡർ മഞ്ജീവ് സിങ് പുരിയും എംബസ്സിയിലെ ഉദ്യോഗസ്ഥർ പർവ്വതാരോഹകർ ഗവേഷകർ തുടങ്ങിയവരും യോഗ ദിനത്തിന് മുന്നോടിയായി സംഘടിപ്പിച്ച ആഘോഷത്തിൽ പങ്കെടുത്തു ദൈനംദിന ജീവിതങ്ങളിൽ യോഗയുടെ പ്രാധാന്യത്തെ സൂചിപ്പിക്കുന്നതിനും രാജ്യത്തിനു പുറത്തും എല്ലാ ഭൂഖണ്ഡങ്ങളിലും സമാധാനം സൃഷ്ടിക്കുന്നതിനുമാണ് ആഘോഷം ലക്ഷ്യമിടുന്നത് ഇതാദ്യമായാണ് എവറസ്റ്റ് കൊടുമുടിയുടെ ബേസ് ക്യാമ്പിൽ യോഗാദിന ആഘോഷങ്ങൾ സംഘടിപ്പിക്കുന്നത്

ഓരോ മാസവും ആദ്യത്തെ കുറച്ചു ദിവസങ്ങൾ ക്കുശേഷം റേഷൻകട ഉടമകൾ ഭക്ഷ്യധാന്യങ്ങൾ വിതരണം ചെയ്യുന്നില്ല എന്ന പരാതി ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് മന്ത്രിയുടെ വിശദീകരണം ഇത് സംബന്ധിച്ച് മഹാരാഷ്ട്ര ഗവൺമെന്റ് സർക്കുലർ പുറപ്പെടുവിച്ചു

വിജിലൻസ് ആന്റ് ആന്റി കറപ്ഷൻ ബ്യൂറോയുടെ പാലക്കാട് യൂണിറ്റിന്റെ പുതിയ ക്കെട്ടിട്ടു സമുച്ചയം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ് അഴിമതി ഏത് മേഖലയിലായാലും കർശനമായ നടപടി സ്വീകരിക്കുന്നതിന്റെ ഭാഗമായി വിജിലൻസ് വിഭാഗം ഒട്ടേറെ മേഖലകളിൽ മിന്നൽ പരിശോധന നടത്തുന്നുണ്ട് സംസ്ഥാനത്തെ വിജിലൻസ് വിഭാഗത്തിന്റെ പൊതുശേഷി വർദ്ധിപ്പിക്കും അതിന്റെ ഭാഗമായി സംസ്ഥാനത്തിന്റെ വിവിധ് ഇടങ്ങളിൽ ഓഫീസുകൾ സജ്ജമാക്കുന്നതിനുളള നടപടി സ്വീകരിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു

മാഞ്ചസ്റ്ററിലെ ഓൾഡ് സി

ഫോർഡ് സ്റ്റേഡിത്തിൽ ടോസ് നേടിയ പാകിസ്ഥാൻ് ഇന്ത്യയെ ബാറ്റിംഗിനയക്കുകയായിരുന്നു

ഈ ലോക കപ്പിൽ തന്നെ രോഹിത് നേടുന്ന രണ്ടാം സെഞ്ചറിയാണിത്

മൂന്ന് പോയിന്റുമായി ഒമ്പതാം സ്ഥാനത്തുള്ള പാകിസ്ഥാന് ഇന്നത്തെ മത്സരം നിർണായകമാണ്

വൈനലിൽ ചൈനയാണ് ഇന്ത്യയെ പരാജയപ്പെടുത്തി സ്വർണം കരസ്ഥമാക്കിയത്